പ്രചരണം ഊൌർജ്ജിതം

ബി

എല്ലിൽ ഇന്ന് രണ്ട് കളികൾ

ഒന്നാംഘട്ട പ്രചാരണം ചൊവ്വാഴ്ച അവ്വസ്ഥനിക്കും അടുത്ത വ്യാഴാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ കുച്ച് ബഹാറിൽ ഇന്ന് പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു രാജ്യത്ത് താമസിയാതെ ഫോൺകോളുകൾ സൌജന്യമാകുമെന്നും ഇന്റർനെറ്റ് നിരക്ക് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലെത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു റാലിക്കായി പരിമിതമായ സ്ഥലംമാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചത് അതിനാൽ കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി

ജെ പി പ്രകടന പത്രിക ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഭുവനേശ്വറിൽ പ്രസിദ്ധീകരിക്കും

കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയ്ക്കാ ് ഗാന്ധി ഉത്തർപ്രദേശിലെ സഹരൻപൂർ ഷാംലിക്ക് ബിജ്നോർ എന്നിവിടങ്ങളിൽ പൊതുസമ്മേളനത്തെ ആഭിസംബോധന ചെയ്യും

അല്ലാത്തപക്ഷം പരസ്യം നൽകുന്നതിന് കമ്മീഷന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു

രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന പരസ്യങ്ങൾക്ക് സ്ലംബന്ധിച്ച് മുൻകൂർ അനുമതി മാധ്യമ സർട്ടിഫിക്കേഷൻ എന്നിവ അനുവദിക്കുന്നതും സംസ്ഥാന ജില്ലാ തലങ്ങളിലുള്ള നിരീക്ഷണ സമിതികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണ്ണ്മെന്നും കമ്മീഷൻ വ്യക്തമാക്കി

സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്ന പ്രചാരണം നീതി യുക്തവും ധാർമ്മികവുമായിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു

കരുണ രാജു രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു വനം പരിസ്ഥിതി മന്ത്രാലയങ്ങളിലും ഇക്കാര്യം അവശ്യപ്പെട്ടതായി അദ്ദേഹം അറിയിച്ചു

പ്രശ്നമുള്ള ബൂത്തുകളിൽ കോഴീക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ ബൂത്തുകൾ ഉൾപ്പെടുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

സമാജ്വാദി ബഹുജൻ സമാജ് വാദി രാഷ്ട്രീയ ലോക്ദൾ എന്നീ പാർട്ടികളുടെ സഖ്യമാണ് സംയുക്ത പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത് മായാവതി അഖിലേഷ് യാദവ് അജിത് സിംഗ് തുടങ്ങിയ നേതാക്കൾ സഹ്റൻപൂരിൽ റാലിലെ അഭിസംബോധന ചെയ്യും

മുതിർന്ന ബി ജെ

നേതാവ് ജെ

നദ്ദയും ഇന്ന് ലക്നൌവിൽ എത്തുന്നുണ്ട്

പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിപട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്

ഈ ബൂത്തുകളിൽ സുരക്ഷാ ചുമതലകൾ ഉൾപ്പെടെയുള്ള തെരെഞ്ഞെടുപ്പ് ജോലി കൾ വനിതകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും മിസ്സോറാ മിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വനിതകളുടെ നിയ ന്ത്രണത്തിലുള്ള ഇത്തരം ബൂത്തുകൾ ഏർപ്പെടുത്തിയിരിന്നു

എൽ ക്രിക്കറ്റ് മത്സരങ്ങളിലൂടെ വോട്ടർമാരിൽ ബോധവൽക്കരണം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

എൽ ക്രിക്കറ്റ് മത്സരങ്ങൾ ഏറെ ജനങ്ങളെ ആകർഷിക്കുന്നുവെന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി

എൽ അധികൃതരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് ധാരണയായി

ബി ഐ സുപ്രീംകോടതിയുടെ അനുമതി തേടി രാജീവ് കുമാറിന്റെ അറസ്റ്റ് വിലക്കുന്ന മുൻ ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു ചോദ്യം ചെയ്യലുമായി രാജീവ് കുമാർ സഹകരിക്കുന്നില്ലെന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്നുമാണ് സി ബി

പിന്നീടാണ് ഈ കേസ് സി ബി ഐ യ്ക്ക് കൈമാറിയത്

ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടിയെന്നാണ് വിശദീകരണം

ബി ഐ

ഭൂഷൻ കമ്പനിയടെ ന്തൃത്വത്തിൽ കോടിക്കണക്കിന് രൂപ വ്യാജ കമ്പനികളിലേക്ക് മാറ്റി എന്നാണ് ആരോപണം

ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ബംഗളുരുവിൽ നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡെൽഹി ക്യാപിറ്റൽസിനെ നേരിടും